പൌരത്വ നിയമ ഭേദഗതിയിലെവിടെയും പൌരത്വം എടുത്തു കളയാൻ വൃവസ്ഥയില്ലെന്ന് ആഭൃന്തരമന്ത്രി അമിത്ഷാ പൌരത്വ വിഷയത്തിൽ പ്രവാസികളുൾപ്പെടെ കേരളീയർ ഒരുതരത്തിലും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പുനപരിശോധനാ ഹർജി കളിൽ സുപ്രീംകോടതിയുടെ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് ഇന്ന് വാദം ആരംഭിക്കും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ്കേരളത്തിന്റെ ആൻസി സോജന് ഇരട്ട സ്വർണ്ണം ഐഎസ്എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിന് ജയം

ആധുനികതയുടെ പുതിയ തലങ്ങളിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിൽ യുവാക്കളെ പ്രധാനമന്ത്രി അനുമോദിച്ചു

കേന്ദ്ര ഗവൺമെന്റ് യുവാക്കളുടെ താൽപര്യത്തോടും സ്വപ്നത്തോ ടുമൊപ്പമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു എല്ലാ ശക്തിയും യുവാ ക്കളിലുണ്ടെന്ന സ്വാമി വിവേകാനന്ദന്റെ നിരീക്ഷണം ഓർമിപ്പിച്ച പ്രധാ നമന്ത്രി ആ ശക്തി വെളിപ്പെടുത്തണമെന്നും ഏതു കാര്യവും ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന് യുവാക്കൾ വിശ്വസിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

പൌരത്വ നിയമ ഭേദഗതി യാഥാർത്ഥ്യമായെന്നും നരേന്ദ്രമോദി അറിയിച്ചു പൌരത്വ നിയമ ഭേദഗതിയിൽ എവിടെയും പൌരത്വമെടുത്തു കളയാൻ വ്യവസ്ഥയില്ലെന്ന് ആഭ്യന്തര മന്ത്രി അമിത്ഷാ അറിയിച്ചു പൌരത്വം നൽകാനാണ് ഭേദഗതിയിൽ വൃവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് മധ്യപ്രദേശിലെ ജബൽപൂരിൽ റാലിയെ അഭിസംബോധന ചെയ്യവേ അമിത്ഷാ അറിയിച്ചു പൌരത്വം നഷ്ടപ്പെടുമെന്ന് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനാലാണ് ബി

പി ഇക്കാര്യത്തിൽ പൊതുജന ബോധവത്കരണ

പൌരത്വ വിഷയത്തിൽ പ്രവാസികളുൾപ്പടെ കേരളീയർ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ആശങ്ക ഉയർത്തുന്ന പ്രശ് നങ്ങൾ പ്രിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കുമെന്നും അതിന് അവകാശവും അധികാരവും ഗവൺമെന്റിനുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു പൌരത്വനിയമഭേദഗതി വിഷയത്തിൽ ഭരണഘടനാ സംരക്ഷണ സമിതി കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി ഇവിടെ ജനിച്ചുവീണവർ ഈനാടിന്റെ പൌരൻമാരാണോയെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ടെന്നും ഇവിടെ ജനിച്ചു വളർന്നവരാരും പിതാമഹരുടെ ജനനസർട്ടിഫിക്കറ്റ് തേടി പോകേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സെൻസസ് അല്ലാതെ ജനസംഖ്യാ രജിസ്റ്റർ വീടുകയറി എടുക്കില്ലെന്നും മുഖ്യമന്ത്രി വൃക്തമാക്കി പൌരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ കുപ്രചാരണങ്ങൾ നടത്തി ന്യൂനപക്ഷങ്ങളിൽ ഭീതി പരത്താനും അവരെ വരുതിക്കു നിർത്താനുമാണ് രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി വി

കേരളത്തിൽ രണ്ട് നേതാക്കൾ മുഖ്യമന്ത്രി കസേരക്കുവേണ്ടി നടത്തുന്ന കളിയിൽ മുസ്ലിം വോട്ടർമാരെ കരുക്കളാക്കുന്ന രാഷ്ട്രീയ തന്ത്രമാണ് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കാസർകോട്ട് നീലേശ്വരത്ത് ബി

പി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുരളീധരൻ

തൃണമൂൽ കോൺഗ്രസും ബി

പിയും കോൺഗ്രസ് അധ്യക്ഷ സോണിയാ ഗാന്ധി വിളിച്ച യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ പുനപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് മുതൽ വാദം കേൾക്കും ചീഫ് ജസ്റ്റിസ് എസ്

ജസ്റ്റിസുമാരായ ആർ ഭാനുമതി അശോക് ഭൂഷൺ എൽ നാഗേശ്വര റാവു എം

ആർ ഗവായ് സൂര്യകാന്ത് എന്നിവരാണ് ബെഞ്ചിലെ മറ്റംഗങ്ങൾ വിധി പറഞ്ഞ ബെഞ്ചിലെ ജഡ്ജിമാർ ഭരണഘടനാ ബെഞ്ചിലില്ല ശബരിമല് സ്ത്രീ പ്രവേശന വിഷയത്തിലുൾപ്പെടെ ഉയർന്നു പ്രെന്ന് മത സ്വാതന്ത്ര്യവും മൌലികാവകാശങ്ങളുമായി ബ്രസ്പ്പെട്ട ഏഴ് ഭരണഘടനാ പ്രശ്നങ്ങളാണ് ബെഞ്ച് പരിശോധിക്കുക മുസ്ലീം സ്ത്രീകളുടെ പള്ളി പ്രവേശനം മറ്റു സമുദായങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുന്ന പാഴ്സി സ്ത്രീകളുടെ ആരാധാനാ വിലക്ക് എന്നിവയും ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കും ശബരിമല ക്ഷേത്രത്തിൽ മകരവിളക്കിന്റെ മുന്നോടിയായി ഇന്ന് ശുദ്ധിക്രിയകൾക്ക് തുടക്കമാകും നാളെ പമ്പവിളക്കും പമ്പസദ്യയും നടക്കും പേട്ട തുള്ളൽ കഴിഞ്ഞെത്തുന്ന ഭക്തർ പമ്പാ തടത്തിൽ സംഗമിച്ചാണ് ചടങ്ങുകൾ നടത്തുക ബുധനാഴ്ചയാണ് പ്രശസ്തമായ മകരവിളക്ക്

ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവ്വഹിക്കും

ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന പൊലീസ് നടപ്പാക്കുന്ന കവചം പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി കണ്ണൂരിൽ നിർവ്വഹിക്കും ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സന്തോഷകരമായ ജീവിതം ഉറപ്പു വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കവചം നടപ്പാക്കുന്നത് ജമ്മു കശ്മീരിലെ പുൽവാമയിൽ ഹിസ്ബുൾ കമാൻഡറടക്ക്ം മൂന്ന് ഭീക രരെ സുരക്ഷാ സൈന്യം ഏറ്റുമുട്ടലിൽ വധിച്ചു ഭൂീകരരിൽ നിന്നും ആയുധങ്ങളും വെടിമരുന്നും പിടിച്ചെടുത്തായി പൊലീസ് ഇൻസ്പെ ക്ടർ ജനറൽ വിജയ്കുമാർ ശ്രീനഗറിൽ അറിയിച്ചു കളിയിക്കാവിളയിലെ കേരളാ തമിഴ്നാട് അതിർത്തി ചെക്ക് പോസ്റ്റിൽ തമിഴ്നാട് പൊലീസിലെ എ

ഐ വിൽസണെ വെടിവച്ചു കൊന്ന സംഭവത്തിൽ ആറുപേർ കൂടി പിടിയിലായി നാലു പേരെ കൊല്ലം തെൻമലയിൽ നിന്നും രണ്ടു പേരെ തിരുനെൽവേലിയിൽ നിന്നുമാണ് പിടികൂടിയത് സാഹസിക നീക്കത്തിലൂടെയാണു കൊല്ലം റൂറൽ പൊലീസും തമിഴ്നാട് ക്യു ബ്രാഞ്ചും ചേർന്ന് തെന്മലയിൽ നിന്ന് സംഘത്തെ പിടികൂടിയത്

പാലരുവിയിലെത്തിയ സംഘം വെള്ളച്ചാട്ടത്തിൽ കുളിച്ച ശേഷം തിരികെ വാഹനത്തിൽ ജം ങ് ഷനിലെത്തിയപ്പോഴാണ് കേരള തമിഴ്നാട് പൊലീസ് സംയുക്തമായി പിടികൂടിയത് ഇവരെ തമിഴ്നാട് ക്യൂബ്രാഞ്ച് കസ്റ്റഡി യിലെടുത്തു ഗോഹട്ടിയിൽ മൂന്നാമത് ഖെലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ കേരളത്തിന്റെ ആൻസി സോജന് ഇരട്ട സ്വർണ്ണം

ദീപ്തിയും സ്വർണ്ണം കരസ്ഥമാക്കി

ഇന്ന് അത്ലറ്റിക്സ് ജിംനാസ്റ്റിക്സ് ജൂഡോ കബഡി ഷൂട്ടിങ് ടേബിൾ ടെന്നിസ് വോളിബോൾ തുടങ്ങിയ ഇനങ്ങളിൽ മത്സരങ്ങൾ നടക്കും കൊൽക്കത്തയിൽ ഐ

എൽ ഫുട്ബോളിൽ കേരളാ ബ്ലാസ്റ്റേഴ്സിന് ജയം കൊൽക്കത്ത എ

കെയെ എതിരില്ലാത്ത് ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത് എഴുപതാം മിനുട്ടിൽ ഹാലിചരൻ നർസാറിയാണ് കേരളത്തിന്റെ വിജയഗ്വോൾ നേടിയത്

കെ മൂന്നാം സ്ഥാനത്താണ്

വിരാട് കോഹ്ലിയാണ് ക്യാപ്റ്റൻ

വിശ്രമത്തിലായിരുന്ന വൈസ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തി

ടെസ്റ്റ് ഏകദിന ടീമുകളെ പിന്നീട് പ്രഖ്യാപിക്കും

ബംഗാൾ താർം റിച്ച ഘോഷാണ് ടീമിലെ പുതുമു ഖം അംഗണവാടി കുടുംബ സർവ്വേയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് മന്ത്രി കെ

അമ്മമാരിലും കുട്ടികളിലും ഉണ്ടാകുന്ന പോഷണക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച സമ്പുഷ്ട കേരളം പദ്ധതിയുടെ ഭാഗമായാണ് അംഗണവാടി കുടുംബ സർവ്വേ ആരംഭിച്ചതെന്ന് മന്ത്രി ട തിരുവനന്തപുരത്ത് അറിയിച്ചു ഈ സർവ്വേയുമായി ബന്ധപ്പെട്ട് ചില കോണുകളിൽ നിന്നും തെറ്റിദ്ധാരണാജനകമായ സന്ദേശങ്ങൾ പ്രചരിക്കുകയാണെന്നും അംഗണവാടി വർക്കർമാർ നടത്തുന്ന ഭവന സന്ദർശനത്തിന് പൌരത്വ രജിസ്റ്ററുമായി യാതൊരു ബന്ധവുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി ആരോഗ്യകരമായ രീതിയിലേക്ക് വ്യവസായ രംഗം മാറിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ടൈകേരളയുടെ ലൈഫ് ടൈം അച്ചീവ് മെന്റ് അവാർഡ് വി

സി മമ്മദ്കോയ എം

നാട്ടിൽ ഇനിയും നിക്ഷേപങ്ങൾ നടത്താൻ തയ്യാറാണെന്നാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന ആഗോള നിക്ഷേപക സംഗമത്തിൽ വൃവസായികൾ പറഞ്ഞതെന്നും നാടിന്റെ കുറിച്ച് നടക്കുന്ന ദുഷ്പ്രചാരണങ്ങൾ ശരിയല്ലെന്ന് അവർ വൃക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ തോട്ടം മേഖലയുടെയും തൊഴിലാളികളുടെയും താൽപര്യ സംരക്ഷണത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി ടി

മൂന്നാറിലെ കുറ്റിയാർവാലിയിൽ ഫൊക്കാനയുടെ സഹായത്തോടെ ഭവനം ഫൌണ്ടേഷൻ നിർമിച്ച അഞ്ച് വീടുകളുടെ താക്കോൽ ദാനവും സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചെറിയ കാരൃങ്ങളുടെ പേരിൽ നിഷേധിക്കപ്പെട്ട അവകാശങ്ങളും അനുമതികളും ലഭ്യമാക്കാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് മന്ത്രി എ

കോഴിക്കോട് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ലൈഫ് മിഷൻ ഗുണഭോക്താക്കളുടെ കുടുംബസംഗമവും അദാലത്തും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇടുക്കിയിലെ നെടുങ്കണ്ടം തൂക്കുപാലം ബി

ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ബി

പി സംസ്ഥാന സെക്രട്ടറി എ

പി ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി തൂക്കുപാലം ടൌണിൽ നടത്തിയ യോഗം ഉദ്ഘാടനം ചെയ്ത ശേഷം പള്ളിയിൽ നമസ് കരിക്കാൻ കയറിയ നസീറിനെ ഒരു സംഘം മർദ്ദിക്കുകയായിരുന്നു സ്ഥലത്ത് വൻ പൊലീസ് സന്നാഹം കൃാംപ് ചെയ്യുന്നുണ്ട്

കെ നസീറിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനവും യോഗവും നടത്താൻ ബി

പി സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ് തു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഈ വർഷം പോകുന്ന തീർത്ഥാടകരെ തെരഞ്ഞെടുക്കുന്നതിന് നറുക്കെടുപ്പ് ഇന്ന് രാവിലെ കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ മന്ത്രി കെ ടി ജലീൽ നറുക്കെടുപ്പ് നടത്തും ഹജ്ജ് ഹൌസിനോട് ചേർന്ന് നിർമ്മിക്കുന്നു വനിതാ ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും മന്ത്രി നിർവ്വഹിക്കും കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനതാവളത്തിൽ നിന്നും സർവ്വീസ് പുനരാരംഭിക്കുന്നതുമായ് ബന്ധപ്പെട്ട വിഷയത്തിൽ എം കെ രാഘവൻ എം പി എമിറേറ്റ്സ് എയർലൈൻ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് വെസ്റ്റ് ഏഷ്യ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ സീനിയർ വൈസ് പ്രസിഡന്റ് അഹമ്മദ് ഹാഷിം ഹൂറിയുമായ് ദുബായ് എമിറേറ്റ്സ് ഹെഡ്ക്വാട്ടേഴ് സിൽ കൂടികാഴ്ച നടത്തി വിഷയത്തിൽ അടിയന്തിര നടപടികൾ സ്വീകരിക്കാമെന്നും സർവ്വീസുകൾ യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യൻ വ്യോമയാന വകുപ്പുമായ് ഉടൻ ബന്ധപ്പെടാമെന്നും അഹമ്മദ് ഹാഷിം ഹൂറി ഉറപ്പ് നൽകിയതായി എം പി അറിയിച്ചു